സ്വീകരിക്കുമെന്ന് മന്ത്രി ഡോക്ടർ കെ

ആറ് ജില്ലകളിൽ റെഡ് അലർട്ട് ഇന്ന് കർക്കിടകം ഒന്ന്

വിമത എം എൽ എമാരുടെയും സ്പീക്കറുടെയും മുഖ്യമന്ത്രിയുടെയും വിശദമായ വാദം കോടതി ഇന്നലെ കേട്ടി രുന്നു കുമാരസ്വാമി മന്ത്രിസഭ നാളെ വിശ്വാസവോട്ട് തേടാനിരിക്കെ സുപ്രീം കോടതി വിധി രാഷ്ട്രീയകേന്ദ്രങ്ങൾ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഇന്ത്യൻ നാവികസേനാ മുൻ ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ ജാദവിന് പാകിസ്ഥാൻ വധശിക്ഷ വിധിച്ചതിനെതിരെ ഇന്ത്യ സമർപ്പിച്ച ഹർജിയിൽ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇന്ന് വിധി പറയും

ജലീൽ ചാൻസലർ കൂടിയായ ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തിന് ഉറപ്പ് നൽകി രാജ്ഭവനിൽ ഗവർണറെ സന്ദർശിച്ച അദ്ദേഹം കോളേജിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുമെന്നും അറിയിച്ചതായി രാജ്ഭവൻ വാർത്താകുറിപ്പിൽ വെളിപ്പെടുത്തി

അതിനിടെ കേരള സർവകലാശാലയിലെ എല്ലാ പരീക്ഷാകേന്ദ്രങ്ങളിലും ഉത്തരകടലാസുകളുടെ സ്റ്റോക്ക് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വൈസ് ചാൻസലർ വി

മഹാ ദേവൻ പിള്ള അറിയിച്ചതായും രാജ്ഭവൻ വ്യക്തമാക്കി ഉപയോഗിക്കാത്ത ഉത്തര ക്കടലാസുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും കേന്ദ്രങ്ങളോട് ആവശ്യപ്പെട്ടിട്ടു ണ്ടെന്നും വൈസ് ചാൻസലർ പറഞ്ഞു വധശ്രമകേസ് പ്രതിയുടെ വീട്ടിൽ നിന്നും ഉപയോഗിക്കാത്ത ഉത്തരക്കടലാസുകളും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ട റുടെ സീലും കണ്ടെത്തിയ സംഭവത്തിൽ വി സിയോട് ഗവർണർ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു പ്രതിപക്ഷ നേതാക്കൾ നൽകിയ നിവേദനം ഉചി തമായ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നും രാജ്ഭവൻ അറിയി ച്ചു പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ഒ രാജഗോപാൽ എം

എ യുടെ നേതൃത്വ ത്തിൽ എൻ ഡി എ നേതാക്കൾ ഗവർണറെ കണ്ട് ആവശ്യപ്പെട്ടു

ബയോപാർക്ക് കേന്ദ്രീ കൃത വികേന്ദ്രീകൃത മാലിന്യനിർമ്മാർജ്ജനം ഇ വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയ പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത്

പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് കെയർ ഹോം പദ്ധതിയിലൂടെ ഇടുക്കി മുരിക്കാശ്ശേരി സർവ്വീസ് സഹകരണ ബാങ്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാന കർമ്മം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തിന്റെ ജലലഭ്യതയും ആവശ്യകതയും കണ്ടെത്താൻ ജല വിഭവ വകുപ്പ് ജലബഡ്ജറ്റ് തയ്യാറാക്കും ഹരിതകേരളം മിഷ്ടന്റെ നേതൃത്വത്തിൽ ജലഅതോറിറ്റി ജലസേചനം കൃഷി മൃഗസംരക്ഷണം തദ്ദേശസ്യയംഭരണം തുട ങ്ങിയ വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് ജലബഡ്ജറ്റ് യാഥാർത്ഥ്യമാക്കുക

ജലസ്രോത സ്സുകൾ സംരക്ഷിക്കുകയും ജലവിനിയോഗത്തിനായി സമഗ്രമായ പദ്ധതികൾ ആവി ഷ്കരിക്കുകയും ചെയ്യുക എന്ന ആശയവും ജലബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു ഈ വർഷം ഡിസംബർ ഒന്നു മുതൽ ജലവിനിയോഗ പദ്ധതികളുടെ നിർവ്വഹണം ആരംഭിക്കാൻ കഴിയുംവിധമാണ് നടപടി പുരോഗമിക്കുന്നത്

തുടർന്ന് നിയോ ജക മണ്ഡലം ജില്ലാ തലങ്ങളിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ ജനകീയ പിന്തുണ യോടെ ആസൂത്രണം ചെയ്ത് പദ്ധതി തയാറാക്കും

കേന്ദ്ര സംസ്ഥാന ഗവൺ മെന്റുകളുടെ സഹാ യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്

നാലു മാസത്തിൽ താഴെ പ്രായം വരുന്നവയെയും രോഗം ബാധിച്ചതിനെയും കുത്തിവെയ്പിൽ നിന്ന് ഒഴിവാക്കും സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു പലയിടങ്ങളിലും മഴ ഇന്ന് ശക്തിപ്പെടും ഇന്നും നാളെയും കനത്തതോ അത്യന്തം കനത്തതോ ന ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ മുതൽ മൂന്നു ദിവസം അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആറ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി മലപ്പുറം ജില്ലകളിൽ നാളെ മുതൽ മൂന്നു ദിവസവും കണ്ണൂർ വയനാട് ജില്ലകളിൽ മറ്റന്നാളും എറണാകുളം തൃശൂർ ജില്ലകളിൽ ശനിയാഴ്ചയുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നു മുതൽ ശനിയാഴ്ച വരെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജന ങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ദുരന്തനിവാ രണ അതോറിറ്റി തിരുവനന്തപുരത്ത് അറിയിച്ചു

രാമായണ മാസാചരണത്തിന് ഇന്ന് തുടക്കം ക്ഷേത്രങ്ങളും വീടുകളും ഇനി ഒരു മാസക്കാലം രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും രാവിലെ തന്നെ രാമായണ പാരായണത്തിന് തുടക്കമായി പഞ്ഞമാസമായ കർക്കി ടകത്തിൽ രാമായണം വായിക്കുന്നിടത്ത് സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും എന്നാണ് വിശ്വാസം തിരൂർ തുഞ്ചൻപറമ്പിൽ രാമായണ മാസാചര ണത്തിനും രാമായണ പ്രഭാഷണ പരമ്പരയ്ക്കും ഇന്ന് തുടക്കമാവും പ്രഭാഷണപരമ്പര തുഞ്ചൻ സ്മാരക ട്രസ്റ് ചെയർമാൻ എം

വാസുദേവൻ നായർ വൈകീട്ട് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സി രാധാകൃഷ്ണൻ പ്രഭാഷണം നടത്തും തുഞ്ചൻ പറമ്പിലെ നവീകരിച്ച പുസ്തകപ്പുരയും അദ്ദേഹം ഉദ്ഘാടനംചെയ്യും മതനിയമങ്ങളും പുണ്യകർമങ്ങളും ശീലമാക്കു ന്നതിൽ ഹജ്ജ് തീർഥാടകർ മാതൃകയാകണമെന്ന് അഖിലേന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമാ ജനറൽ സെക്രട്ടറി കാന്തപുരം എ

അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ യാത്രയയപ്പ് സംഗമത്തിൽ തീർഥാടകരോട് സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം

കാസർകോട് ജില്ലയിൽ തന്നെയോ സമീപ ജില്ലക ളിലോ സൌകര്യമുണ്ടെന്നിരിക്കെ വളരെ ദൂരെ പരീക്ഷാകേന്ദ്രം അനുവദിച്ചത് ഉചിതമായില്ല എന്ന പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ മോഹനകുമാർ പി എസ് സി സെക്രട്ടറിയോട് വിശദീകരണം ആവശ്യപ്പെട്ടത് കാസർകോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ പരാതികൾ പരിഗണിക്കുകയായിരുന്നു അദ്ദേഹം

സ്കൂൾ പരിസരങ്ങളിലെ ഐസ്ക്രീം പാർലറുകളും വ്യാപാര സ്ഥാപ നങ്ങളും നിരന്തര പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവ കാശ കമ്മീഷൻ ഉത്തരവിട്ടു മുതിർന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കി സ്കൂൾ പരിസരവും വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമ രുന്ന് സംഘങ്ങളെ നിരീക്ഷിക്കാൻ പൊലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം പി മോഹനദാസ് ആവ ശൃപ്പെട്ടു കുട്ടികൾക്കിടയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം പി ടി എയു മായി സഹകരിച്ച് നിരന്തരം സംഘടിപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു

മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പി

തൃശൂർ തലോറിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ കുടുംബത്തിനെതിരെ നടത്തിയ ജപ്തി നടപടികൾക്കെതിരെ സ്വമേധയാ കേസെടുക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം

തൃശൂരിൽ വനിതാ കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ തലശേരി നഗരസഭ കൌൺസിലറും ബി

പി കണ്ണൂർ ജില്ലാ കമ്മറ്റിയംഗവുമായ തിരുവങ്ങാട്ടെ ഇ

വൈക്കം ഉദയനാപുരത്ത് മൂവാറ്റുപുഴയാറ്റിലെ ആറ്റുവേലക്കടവിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു എറണാകുളം ഇടപ്പള്ളി സ്വദേശി ലിബിൻ ജോർജാണ് മരിച്ചത്

പൊന്നാനിയിൽ കടലിൽ കുടുങ്ങിയ മൂന്ന് മത്സ്യത്തൊഴിലാളികളെ മറ്റ് വള്ളക്കാർ രക്ഷപ്പെടുത്തി ഇന്നലെ രാവിലെയാണ് കൂട്ടായി വാകാട് മത്സ്യബന്ധന ത്തിനിടെ വഞ്ചി തിരമാലയിൽപ്പെട്ടത് രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഫിഷറീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫിഷറീസ് റസ്ക്യു ഗാർഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിലാണ് വഞ്ചി കണ്ടെത്തിയത്

പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ കോടതി ഇന്ന് വിധി പറയും

മുത്തശ്ശിക്കൊപ്പം ട്യൂഷന് പോവുകയായിരുന്ന കുട്ടിയെ പ്രതി കാത്തുനിന്ന് കൂട്ടിക്കൊണ്ടുപോയി റബ്ബർ തോട്ടത്തിലെത്തിച്ച് പീഡിപ്പിച്ചശേഷം കൊലപ്പെടുത്തു കയായിരുന്നു കുട്ടിയുടെ അമ്മയുടെ സഹോദരി ഭർത്താവ് ആയ പ്രതി രാജേഷിന് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു

ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ കുറ്റപത്രത്തിലെ ചില രേഖകൾ വൃക്തമല്ലെന്ന് പ്രതിഭാഗം പരാതിപ്പെട്ടതിനെ തുടർന്നാണ് കേസ് മാറ്റിയത്

ഡെങ്കിപ്പനിയും വൈറൽ പനിയും പടരുന്നു പകർച്ചവ്യാധി നേരിടാൻ കാഞ്ഞിര പ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാർ അടക്കം മതിയായ സൌകര്യമില്ലാത്ത തിനാൽ നിരവധി പേർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുകയാണെന്ന് പരാതിയുണ്ട്

പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ പെർമിറ്റ് അനുവദി ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദിന പരിശോധന ഉടൻ നടക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് തിരുവനന്തപുരത്ത് അറിയിച്ചു

സി പി ഐ എമ്മിനുവേണ്ടി പി

സിയെ പാർട്ടിക്കാരുടെ റിക്രൂട്ട്മെൻറ് ഏജൻസിയാക്കിയ പി

ചെയർമാൻ രാജിവെക്കുക എന്ന ആവശ്യവുമായി പി

ചെയർമാന്റെ പൊന്നാനിയിലെ വീട്ടിലേക്ക് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തി പൊലീസ് മാർച്ച് തടഞ്ഞതിനെച്ചൊല്ലി പ്രവർ ത്തകരും പൊലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി